അനുകൂലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോൺഗ്രസിന്റെ ലക്ഷ്യ്ം ജനം അംഗീകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ്ജാവദേക്കർ

മുക്തരുടെ എണ്ണം പുതിയ രോഗബാധിതരേക്കാൾ കൂടുതലെന്ന് കേന്ദ്ര ആരോഗൃ മന്ത്രാലയം

സ്വിയാടെക്കും സോഫിയ കെനിനും ഫൈനലിൽ

കാനഡയിൽ നടന്ന ഇൻവെസ്റ്റ് ഇന്ത്യ കോൺഫറൻസിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി തൊഴിൽ വിദ്യാഭ്യാസം കൃഷി എന്നീ മേഖലകളിൽ രാജ്യം നടപ്പാക്കിയ പരിഷ്കാരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ആഗോള മഹാമാരിക്കിടയിലും ഇന്ത്യ ഘടനാപരമായ പരിഷ്കാരങ്ങൾ കൈക്കൊണ്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി

എല്ലാവർക്കും പുതിയ ഇന്ത്യയിൽ അവസരമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഉൌർജ്ജസ്വലമായ ജനാധിപത്യം സർക്കാരിന്റെ സ്ഥിരത ബിസിനസ്സിലെ സുതാര്യത വലിയ വിപണിയുടെ ലഭ്യത എന്നിവ എല്ലാ നിക്ഷേപകർക്കും പ്രവചനാതീതമായ വരുമാനം ഉറപ്പാക്കുന്നുവെന്ന് മോദി പറഞ്ഞു

പകർച്ചവ്യാധിയുടെ ഫലമായി ലോകം മുഴുവൻ പ്രശ്നങ്ങളിലകപ്പെട്ട ഘട്ടത്തിൽ ഇന്ത്യ പരിഹാരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്നലെ വൈകുന്നേരം ന്യൂഡൽഹിയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

അദ്ദേഹ്ത്തിന്റെ ഭൌതികദേഹം ഉച്ചയ്ക്ക് ശേഷം പട്നയിലെ പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും

ദീർഘവീക്ഷണമുള്ള നേതാവിനെയാണ് രാജ്യത്തിന് നഷ്ടമായതെന്ന് രാഷ്ട്രപതി ടിറ്ററിൽ കുറിച്ചു പാസ്വാന്റെ വിയോഗം രേഖപ്പെടുത്താൻ വാക്കുകളില്ലെന്നും അദ്ദേഹത്തിന്റെ വിയോഗം അവശേഷിപ്പിക്കുന്ന ശൂന്യത നികത്താനാകില്ലെന്നും പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മുഖൃമന്ത്രിമാർ ഗവർണർമാർ തുടങ്ങിയവരും പാസ്വാന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി

വന്ദേഭാരത് മിഷന്റെ നടത്തിപ്പിലും ഇന്ത്യക്കാർക്കും വിദേശികൾക്കും കോവിഡ് അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലും ഐഎഫ്എസ് ഓഫീസർമാരുടെ സേവനം ശ്രദ്ധേയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മാധ്യമസ്വാതന്ത്ര്യത്തെ ചവിട്ടിമെതിക്കുന്നത് ഇന്ത്യയിലെ ജനം അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ടെലിവിഷൻ റേറ്റിംഗ് പോയിന്റുകളിൽ കൃത്രിമം നടത്തിയ കേസിൽ കുറച്ചു പേരെ അറസ്റ്റ് ചെയ്തതായി മുംബൈ പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം

ക്ത്രു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ പാഴാക്കില്ല വ്യോമയാനബന്ധം പുന്രാരംഭിക്കുന്നതിനുള്ള പ്രത്യേക എയർ ബബിൾ സംവിധാനം നൽകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് നിക്ഷേപകരും വ്യാപാര പങ്കാളികളും എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വൃവസായങ്ങൾ ബംഗ്ലാദേശിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു

സമഗ്ര പരിശോധന രോഗനിർണയം കാര്യക്ഷമമായ ചികിത്സ എന്നിവയിലൂടെയാണ് രോഗമുക്തി നിരക്ക് വർധിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി

ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ള മഹാരാഷ്ട്രയിൽ രണ്ടര ലക്ഷത്തോളം പേർ ചികിത്സയിലുണ്ട്

ഇന്നലെ മൂവായിരത്തില്ലധികൃം കേസുകൾ റിപ്പോർട്ട് ചെയ്തു

രോഗബാധിതരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ ആഗോളതലത്തിൽ രോഗമുക്തി നിരക്കിൽ ്രഒന്നാമതാണ്

ലോകാരോഗ്യ സംഘടന് സമർപ്പിച്ച പട്ടിക ചൈന ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അനുമതി ലഭിച്ചാൽ മാത്രമേ ചൈനയിലേയ്ക്ക് വിദഗ്ധരെ അയക്കാൻ സംഘടനയ്ക്ക് കഴിയൂ

അമേരിക്കൻ കവയിത്രി ലൂയിസ് ഗ്ലക്കിനാണ് സാഹിത്യ നൊബേൽ

ദേശീയ തപാൽ ദിനം നാളെയാണ്

ഇന്നലെ നടന്ന സെമിയിൽ നാദിയ പോഡോസ്കയെ തോൽപ്പിച്ചാണ് സ്വിയടെക് ഫൈനലിൽ എത്തിയത് രണ്ടാം സെമിയിൽ സോഫിയ കെനിൻ രണ്ട് തവണ ഗ്രാൻഡ്സ്താം ചാമ്പ്യനായ പെട്ര കിറ്റോവയെ തോൽപ്പിച്ചു ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ റാഫേൽ നദാൽ ഷാർട്സ്മാനുമായി ഏറ്റുമുട്ടും

ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും